സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ

നികുതി വകുപ്പിന്റെ കൺട്ട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ന് ഘട്ടത്തിന്റെ ഭാഗ്ദമായി ആരോഗ്യ മന്ത്രിയുൾപ്പെട്ട് നിരവധി പേർ സംസ്ഥാനത്ത് ഇന്ന് വാക്സിൻ സ്വീകരിച്ചു

സ്ഥിരീകരിച്ചു

സാഹചരൃത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി

വിവിധ ജില്ലകളിൽ ഇന്ന് ചേർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയേറ്റ് യോഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് ഏകദേശ രൂപമായതായി ആണ് വിവരം

കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോഗം ഇന്ന് പ്ര സ്ഥാനാർഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടു പ്രചാരണ തിന്ത്ങളും മുദ്രാവാക്യവും സംബന്ധിച്ചും ചർച്ച നടന്നു

ജില്ലികളിൽ നിർദേശിക്കുന്ന പേരുകളിൽ നിന്നു സംസ്ഥാന നേതൃത്വം ചുരുക്കപ്പട്ടിക തയാറാക്കും തുടർന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താകും അന്തിമപട്ടികയ്ക്കു രൂപം നൽകുക തെരഞ്ഞെടുപ്പ് ചെലവ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കൺട്രോൾ റൂം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ നിരീക്ഷിക്കുകയാണ് കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം

പണമോ മറ്റ് മൂല്യമുള്ള വസ്തുക്കളോ വൻതോതിൽ കൈവശം വച്ചിരിക്കുന്നതായോ കൈമാറ്റം ചെയ്യുന്നതായോ ഉള്ള വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ആദായ നികുതി വകുപ്പ് ജനങ്ങളോട് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ചു അതിഥി മന്ദിരം നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബ്ന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം അടിസ്ഥാനമാക്കി സർക്കാർ അതിഥി മന്ദിരങ്ങളിലും കേരള ഹൌസുകളിലും മുറികളും ഹാളുകളും അനുവദിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തി പൊതുഭരണ വകുപ്പ് സർക്കുലർ പദവി വഹിക്കുന്ന പുറത്തിറക്കി ക്യാബിനറ്റ് വൃക്തികൾ ജനപ്രതിനിധികൾ മുൻ അംഗങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരല്ലാത്ത ഔദ്യോഗിക പദവി വഹിക്കുന്നവർ എന്നിവരുടെ താമസത്തിന് മുറി വാടക പൂർണ നിരക്കിൽ ഈടാക്കാനാണ് തീരുമാനം

ചട്ട ലംഘനം കണ്ടാൽ അതു മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തി സി വിജിൽ വഴി ജില്ലാ തിരഞ്ഞെടുപ്പു സെന്ററിലേക്ക് അയയ്ക്കാം

അവിടെ നിന്നു സന്ദേശം അതതു നിയമസഭ മണ്ഡലങ്ങളിലെ സ്കാഡുകൾക്കു കൈമാറും

പ്പേ സ്റ്റോറിൽ നിന്ന് ആപ് ഡൌൺലോഡ് ചെയ്യാം

ഇതു വരെയുള്ള കാര്യങ്ങൾ മുന്നണിയ്ക്ക് വളരെ അനുകൂലമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്തെ സാഹചര്യവും സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

വിജയയാത്രക്ക് കോട്ടയം ജില്ലയിൽ ലഭിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയ്യിരുന്നു അദ്ദേഹം കടുത്തുരുത്തി പാലാ പൊൻകുന്നു എന്നിവിടങ്ങളിൽ ഇന്ന് സ്വീകരണ പരിപാടികൾ നടന്നു കോട്ടയ്ം തിരുനക്കര മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളന്ം കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

ജില്ലയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

ചട്ടം മറികടന്നാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി

ജില്ലയിലെ മൂന്ന് നിയമസഭ മണ്ഡലങ്ങളിൽ രണ്ടും നേടി കഴിഞ്ഞ തവണ എൽഡിഎഫ് ശക്തി തെളിയിച്ചത് കടുത്ത മത്സരത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽചൂണ്ടുന്നത് വിശദാംശങ്ങളുമായി വയനാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്

ആരോഗ്യ മന്ത്രി കെ

ശൈലജ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും ഇന്ന് വാക്സിൻ സ്വീകരിച്ചു സംസ്ഥാനത്ത് വാക്സിനേഷൻ സുഗമമായി നടക്കുന്നതായി മന്ത്രി കെ

ഇതുവരെ നൂാല് ലക്ഷത്തിലധികം പേർ വാക്സിനെടുത്തിൽ ആർക്കും തുണ്ട് ഗുരുതര പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആയിര്യ്തില്ധികം സെന്ററുകൾ വാക് സിനെടുക്കാൻ വിവിധ ജില്ലക്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ഒരേസമയം വാക്സിൻ നൽകാനായി മാസ് വാക് സിനേഷൻ കേന്ദ്രങ്ങളൂട്ടെ സാധ്യതയും നോക്കുമെന്ന് മന്ത്രി അറിയിച്ചു

വിശദാംശങ്ങളുമായി കാസർഗോഡ്പിക് നീന്നും ആകാശവാണി പ്രതിനിധി പി

സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത് പണിമുടക്കിൽ ബി

രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയായിരുന്നു പണിമുടക്ക്

എസ് ആർ ടി

രാജ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബഹ്റ എഡിജിപിമാരായ മനോജ് എബ്രഹാം ബി സന്ധ്യ എസ് ശ്രീജിത്ത് ഐജി പി വിജയൻ ഡിഐജിമാരായ അനൂപ് കുരുവിള ജോൺ പി പ്രകാശ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി

് വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത് പാ്ലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതുകയും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുകയും വേണം അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുകയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുകയും വേണം ചൂട് പരമാവധിയിൽ എത്തുന്ന നട്ടുച്ചക്ക് പാചകത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം പോലീസ് മാധ്യമ പ്രവർത്തകർ നിർമാണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ തുടങ്ങി വെയിലേൽക്കാൻ സാധൃതയുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗ്ലാർത്ഥികൾക്ക് കുടിവെള്ള ലഭ്യത പരീക്ഷ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കണം ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നിരും ്വെയിലത്തു കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

സ്വർണ്ണവിലയിൽ ഇടിവ്